നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വൈറസ് ബാധ സ്ഥിര്യീക്ടിച്ചു പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി ആര്യോഗ്യമന്ത്രി കെ

ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

സമത്വത്തിനായി ഓരോരുത്തരും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാദിന സന്ദേശം വിശദാംശങ്ങളുമായി പ്രിയ രാജൻ

അന്താരാഷ്ട്ര വനിതാദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ രാവിലെ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാരീശക്തി പൂരസ്കാരങ്ങൾ വിതരണം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ദേശീയ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ സ്ത്രീകളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നതായി പ്രപ്പിധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകൾ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവ് ക്രെളിയിച്ചവരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അവരുടെ അദ്ധ്യാനിവും പോരാട്ടവും നിരവധി പേർക്ക് പ്രോത്സാഹനമേകുന്നതാണ് ് സ്ത്രീകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടണമെന്നും അതിൽനിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു വനിതാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സാമൂഹ്യമാധ്യമ അക്കൌണ്ടുകളിലൂടെ ഏഴ് സ്ത്രീകൾ അവരുടെ ജീവിത വിജയത്തെപ്പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയും ജനങ്ങളോട് സംവദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ത്രീകൾക്ക് വനിതാദിന ആശംസകൾ നേർന്നു

സ്ത്രീകളുടെ ആത്മസമർപ്പണത്തിനും നിസ്വാർഥമായ സേവനങ്ങൾക്കും എന്നും കടപ്പെട്ടിരിക്കണമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി വലിയ ചുവടുവയ്പുകളാണ് നടത്തുന്നത് ബേട്ടി ബെച്ചാവോ ബേട്ടി പഠാവോ മുദ്രാ യോജനയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്വച്ച് ഭാരത് മിഷൻ തുടങ്ങിയവ ഇതിന്റെ ഉദാഹരങ്ങളാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി

സ്വന്തമായി വീട്ടേട്ട് തലചായ്ക്കാൻ ഒരിടമോ ഇല്ലാതിരുന്നവർക്ക് അമ്മ ഭക്ഷണം നൽകുന്നത് കണ്ടാണ് താൻ വളർന്നത്

രാജ്യത്തെ പട്ടിണിയ്ക്കും അനീതിയ്ക്കുമെതിരെ നിരന്തരം പോരാടുന്ന സ്ത്രീകൾക്ക് അവർ വനിതാ ദിനാശംസകൾ നേർന്നു വിശപ്പ് രഹിത ഭൂമി സൃഷ്ടിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്നും സ്നേഹ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൌണ്ടിലൂടെ ആഹ്വാനം ചെയ്തു ദിവ്യാംഗരുടെ അവകാശങ്ങൾക്കായി പേരാടുന്ന വനിതയായ ഡോ മാളവിക അയ്യരും പ്രധാനമന്ത്രിയുടെ ടിറ്റർ അക്കൌണ്ടിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു ജീവിത വിജയം കൈവരിക്കാൻ ഭിന്നശേഷി ഒരു തടസ്സമല്ലെന്ന് അവർ പറഞ്ഞു

പുരസ്ക്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്

സ്ത്രീകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടണം സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്കെതിരെയും ലിംഗവിവേചനത്തി നെതിരെയും ശക്തമായ നടപടി വേണമെന്നും ഉപരാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു

കൊറോണ വൈറസ് പോസിറ്റീവ് ആയവരുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചുവരികയാണ് ഇത് വൈകിട്ടോടെപൂർത്തിയാകു മെന്നും മന്ത്രി കെ

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ്വർധൻ വിദേശകാര്യമന്ത്രി എസ്

വൈറസ് ബാധ പ്രതിരോധിക്കാനുള്ള വിവിധ വകുപ്പുകളുടെ സേവനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു വൈറസ് ബാധ പ്രതിരോധിക്കാനുള്ള നടപടികൾ രാജ്യം ആവിഷ്കരിച്ചു കഴിഞ്ഞു

ഉച്ചക്ക് ്പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായാലുടൻ മടങ്ങിപ്പോ്കാനാകും വിധമാണ് കെ എസ് ആർ ടി

ദക്ഷിണ റെയിൽവേയുടെ തിരുവന്ന്ത്പുരം ഡിവിഷൻ ഇന്നും നാളെയും പ്രത്യേക ട്രെയിൻ സ്ഥർപ്പീസുകൾ നടത്തും